ബിഹാറിൽ വോട്ടെടുപ്പ് പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ബിഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

സൈനൃത്തിന്റെ നവീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യൂരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് ന്യൂഡൽഹിയിൽ നടുക്കുന്ന് സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജൃശ്ക്ഷാമന്ത്രി അഭിസംബോധന ചെയ്തു

എല്ലിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ട് മുംബൈയും ബാംഗ്ലൂരും ഇന്ന് നേർക്കുനേർ

ബിഹാറിലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസായ ശാലകൾ അടച്ചിടാൻ കാരണമായ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ബിഹാറിൽ വികസനം കൊണ്ടുവരുമെന്ന വാഗ്ദാനം നൽകുന്നത് അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വകാര്യ കമ്പനികൾ ബിഹാറിൽ നിന്ന് എന്നന്നേക്കുമായി പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പൂർണ്ണമായി പാലിച്ച് സമ്മതിദാന അവകാശം വിനിയോഗിക്കാനും ശ്രീ നരേന്ദ്ര മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു

ബിഹാറിലെ വാൽമീകി നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കാർഷിക പരിഷ്കരണ നിയമങ്ങളിൽ കർഷകർ തൃപ്തരല്ലെന്നും എൻ

എ സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചു

കേരളമാണ് രണ്ടാം സ്ഥാനത്ത്

കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിക്ക് രാജ്യത്തുടനീളം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ

ഇ സഞ്ജീവനിയിലൂടെ രണ്ട് ലക്ഷത്തിലധികം പരിശോധനകൾ നടത്തിയ സംസ്ഥാനമായ തമിഴ്നാടാണ് കൺസൾട്ടേഷനുകളിൽ മുന്നിൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നവീകരണത്തിലൂടെ എല്ലാ മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സൈന്യത്തിന് സാധിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിങ് പറഞ്ഞു നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അനുസരിച്ച് ഇന്ത്യൻ സൈനൃം കൈക്കൊണ്ട നടപടികൾ അഭിമാനകരമാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉയർന്ന് വന്ന സുരക്ഷാ വെല്ലൂഷിളികൾ നേരിടുന്നതിൽ സൈനൃം വിജയിച്ചിട്ടുണ്ടെന്നും രാജൃശ്രക്ഷാ മന്ത്രി പറഞ്ഞു

കെ സാമ്പത്തിക സംവാദത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ലോകത്തിൽ ഏറ്റവും മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള ഏഴ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെയും ബ്രിട്ടന്റേയും സ്ഥാനമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇരുരാജൃങ്ങളുടെയും മൊത്തം ആഭൃന്തര ഉൽപാദനം അഞ്ച് ട്രില്യൺ ഡോളറാണ്

ഇരു രാജ്യങ്ങളിലുമായി അരലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു

നിലവിലെ കമ്മീഷൻ അധ്യക്ഷൻ എൻ കെ സിംഗ് പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോ സി രംഗരാജൻ പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോ വിജയ് കേൽഖർ എന്നിവർ പങ്കെടുത്തു

ഇത് സംബന്ധിച്ച് കേന്ദ്രസർക്കാർ പ്രഖ്യാപിച്ച ഇളവ് അനുവദിക്കാനാണ് ആർ

ഐ നിർദേശം നൽകിയിട്ടുള്ളത്

എന്നാൽ അന്താരാഷ്ട്ര ചരക്ക് വിമാനങ്ങൾക്കും പ്രത്യേക അംഗീകാരമുള്ള വിമാനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമല്ലെന്ന് ഡിജിസിഎ വ്യക്തമാക്കി

ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നിന്നും ഇന്ന് രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ധാക്കയിലെ ഹസ്രത്ത് ഷാജലാൽ വിമാനത്താവളത്തിൽ ്ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമിയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ബംഗ്ലാദേശ് ചെയർമാൻ എയർ വൈസ് മാർഷൽ മാഫിദുർ റഹ്മാനും ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്തു

മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കൃത്ളിയതിനു പിന്നാലെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു്

ഐ

ജമ്മുകശ്മീരിലെ ് പത്ത് സ്ഥലങ്ങളിലും ബംഗളൂരുവിലെ ഒരു കേന്ദ്രത്തിലുമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്

എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുന്നു

ഐ

എല്ലിലെ കരുത്തരായ മുംബൈയും ബാംഗ്ലൂരും പട്ടികയിലെ ഒന്നാം സ്ഥാനത്തിനായാണ് ഇന്ന് പൊരുതുന്നത്